കോവിഡ് വാക്സിൻ വിതരണത്തിന് രാജ്യത്ത് കാര്യക്ഷമമായ സംവിധാനം തയ്യാറാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികൾ ചർച്ചയാകും

രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കോവിഡ് വാക്സിന്റെ നിർമ്മാണം വിതരണം തുടങ്ങിയവ അവലോകനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വാക്സിൻ വിതരണത്തിന് കാര്യക്ഷമമായ സംവിധാനം തയ്യാറാക്ക ണമെന്ന് അദ്ദേഹം അവലോകന യോഗത്തിൽ പറഞ്ഞു കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ശാസ്ത്രജ്ഞരും ഗവേഷകരും അയൽരാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെ മാത്രം മുന്നിൽ കാണുന്ന തരത്തിൽ പ്രവർത്തനുള്ങൾ പരിമിതപ്പെടുത്തരു തെന്നും ലോകത്തിനു മുഴുവൻ വ്യാക്സ്മീനും മരുന്നും ഐടി സംവിധാനങ്ങളും കൈമാറാൻ രിച്ചാറ്റെടുപ്പ് നടത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു

സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും രോഗമുക്തി നിരക്കിലും മഹാരാഷ്ട്രയാണ് ഒന്നാമത്

അതേ സമയം ഇന്നലെ മിസോറാമിൽ പുതുതായി ഒരാൾക്കും രോഗം സ്ഥിരീകരിക്കാത്തത് പ്രതീക്ഷകൾക്ക് വക നൽകുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രോഗബാധ ഏറ്റവും കൂടുതലുള്ള അമേരിക്ക യിൽ രണ്ട് ലക്ഷത്തിലേറെ പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ബ്രസീൽ അർജെന്റീന റഷ്യ തുടങ്ങിയവയാണ് രോഗബാധ കൂടുതലുള്ള മറ്റ് രാജ്യങ്ങൾ

ജോസഫ് മാർത്തോമ്മ മെത്രാപൊലീത്ത കാലം ചെയ്തു

വാർദ്ധകൃസഹജമായ അസുഖത്തെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്യിലായിരുന്നു

ആര്യോഗ്യ കാരണങ്ങളെ തുടർന്ന് ഡോ

ജോസഫ് മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത സ്ഥാനത്തെട്ടുത്തുന്നത്

ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി പാവപ്പെട്ടവരുടെയും ദുർബലരു ടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കഠിനാധ്വാനം ചെയ്ത മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി അനുശോ ചന സന്ദേശത്തിൽ കുറിച്ചു കേരളം സുനാമിയും മഹാപ്രളയവും നേരിട്ടപ്പോൾ സഹായഹസ്തവുമായി മുന്നിലുണ്ടായിരുന്ന മെത്രാ പ്പൊലീത്ത മതനിരപേക്ഷമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് സഭയ്ക്കും സമൂഹത്തിനും നേതൃത്വം നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും ശാസ്ത്രജ്ഞരുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം നടപ്പാക്കേണ്ട സുസ്ഥിര വികസന പദ്ധതികളെ സംബന്ധിച്ചാകും സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്യുക

കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും

രാജ്യത്തെ ആറാമത്തെയും കർണ്ണാടകത്തിലെ ആദ്യ സർവ്വകലാശാലയുമാണ് മൈസൂർ സർവ്വകലാശാല

വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിന് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ച നടപടികൾ അദ്ദേഹം വിശദീകരിക്കും ജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായവും ചോദ്യങ്ങളും പങ്കുവയ്ക്കാനാകുമെന്നും ശ്രീ പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു

ജെ

ക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചാലും നിതീഷ് കുമാർ തന്നെയായിരിക്കും ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ നിമയസഭ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ലോക ജനശക്തി പാർട്ടിക്ക് ആവശ്യത്തിന് സീറ്റുകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായും ശ്രീ

ഡി എ യിൽ നിന്നും വേർപെട്ട് ലോകജനശക്തി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു

ഇക്കാര്യം കേന്ദ്ര സ്മാംസ്കാരിക മന്ത്രാലയവുമായി ചർച ചെയ്തെന്നും അദ്ദേഹം അറിയിച്ചു അക്കിത്തത്തിന്റെ പാലക്കാട് കുമരനെല്ലൂരിലെ വീട് സന്ദർശിച്ചശേഷം സംസാരിക്കുകയാ യിരുന്നു കേന്ദ്രമന്ത്രി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ബന്ധുക്കളെ അദ്ദേഹം അനുശോചനം അറിയിച്ചു

രണ്ടാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർകിംഗ്സിനെ ഡൽഹി ക്യാപിറ്റൽസ് അഞ്ച് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്

ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് ഗ്ലെഡേഴ്സിനേയും രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് കിങ്സ് ഇലവൻ പഞ്ചാബിനെയും നേരിടും